രാജ്യത്ത് വാക്സിൻ ലഭ്യത ഉറപ്പുവരുത്താൻ പ്രധാനമന്ത്രി വിളിച്ചു വാക്സിൻ നിർമ്മാതാക്കളുടെ യോഗത്തിന് തുടക്കമായി

സംസ്ഥാനത്ത് കുതിച്ചുയർന്ന് കോവിഡ് വ്യാപനം

സംസ്ഥാനത്ത് വാത്രാന്ത്യ ലോക്ഡൌൺ വേണ്ടെന്ന് കോവിഡ് കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനം രാത്രി കർഫ്യൂ ഇന്ന് മുതൽ നിലവിൽ വരും

ബന്ധുനിയമന വിവാദത്തിൽ ലോകായുക്ത ഉത്തരവ് റദ്ദാക്കണമെന്ന മുൻമന്ത്രി കെ

ജലീലിന്റെ ഹർജി ഹൈകോടതി തള്ളി

രാജ്യത്ത് ആവശ്യമായ കോവിഡ് വാക്സിൻ ലഭ്യത ഉറപ്പുവരുത്തുകയാണ് ചർച്ചയുടെ ലക്ഷ്യം നിലവിലെ കോവിഡ് സ്ഥിതി സംബന്ധിച്ച് പ്രധാനമന്ത്രി ഇന്നലെ ഡോക്ടർമാരുമായും ഫാർമ കമ്പനി മേധാവികളുമായും ചർച്ച നടത്തിയിരുന്നു

നിലവിൽ ലോക്ഡൌണിലേക്കു പോകേണ്ട സാഹചരൃം ഇല്ലെന്നും യോഗം വിലയിരുത്തി ജില്ലാ ശരാശരിയെക്കാൾ ഇരട്ടിയിലധികം കോവിഡ് സ്ഥിരീകരണ നിരക്കുള്ള പഞ്ചായത്തുകളിലെ എല്ലാ വീടുകളിലും പരിശോധന നടത്തും സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും കൂട്ട പരിശോധന നടത്താൻ നേരത്തെ തീരുമാനമെടുത്തിരുന്നു

നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പിലാക്കാൻ പോലീസിന്റെ ശക്തമായ നിരീക്ഷണവും ഏർപ്പാടാക്കിയിട്ടുണ്ട് വീടുകളിൽ ഉൾപ്പടെ പ്രവർത്തിക്കുന്ന ട്യൂഷൻ സെന്ററുകളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിരോധിച്ചു

രാഹുൽഗാന്ധി വേഗം രോഗമുക്തി നേടട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു

ശൈലജ ക്വാറന്റൈനിൽ മകനും ഭാര്യയ്ക്കും കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആരോഗൃമന്ത്രി കെ

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഓൺലൈൻ വഴിയും ഫോൺ വഴിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു

ജി

സി പരീക്ഷകളും മാറ്റിവെച്ചു

കൊവിഡ് പ്യാപ്പുനമുള്ള സ്ഥലങ്ങളിൽ പ്രദർശനത്തെ കുറിച്ച് ഉടമകൾക്ക് തീരുമാനമെടുക്കാമെന്നാണ് സർക്കാർ നിർദേശം

ടി

എമ്മിന്റെയും മുഖത്തേറ്റ പ്രഹരമാണ് ഹൈക്കോടതി വിധിയെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ധാർമ്മികത ഒന്നുമല്ല നിൽക്കക്കള്ളിയില്ലാതെ നാണംകെട്ടാണ് കെ

ഹൈക്കോടതിയിൽനിന്ന് അനുകൂല വിധി കിട്ടില്ലെന്ന് ഉറപ്പായതോടെയാണ് ജലീൽ രാജിവച്ചത്രെന്നും അദ്ദേഹം പറഞ്ഞു

കുട്ടിയെ കൊലപ്പെടുത്തിയ ആലുവ കങ്ങരപ്പടിയിലെ ഫ്ലാറ്റിൽ എത്തിച്ചാണ് ആദ്യം തെളിവെടുപ്പ് നടത്തിയത് ഫ്ലാറ്റിലെ തെളിവെടുപ്പിന് ശേഷം മുട്ടാർ പുഴയുടെ തീരത്ത് എത്തിച്ചും തെളിവെടുപ്പ് നടത്തി